കെവിൻ വധം ദുരഭിമാന കൊലയെന്ന് കോടതി

കേസിലെ പത്ത് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു

കോട്ടയം സ്വദേശിയായ കെവിനെ ദുരഭിമാനത്തിന്റെ പേരിൽ ഭാര്യ നീനുവിന്റെ സഹോദരനും കൂട്ടുകാരും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് കോടതി കണ്ടെത്തിയത്

എ ഇ

എസ്

എന്നാൽ സ്റ്റിയറിങിലെ വിരലടയാളത്തിൽ വൃക്തതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു

അനുബന്ധ പുഴകളിൽ ജലം ഉയരാൻ സാധ്യത കണക്കിലെടുത്ത് നദീതീരങ്ങളിലെ പത്തോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു